ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി

ആത്മഹതൃയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു

തകർച്ച

മുസ്ലീം സ്ത്രീകളെ ശാക്തീകരിക്കാനും അവരുടെ സംരക്ഷണത്തിനുമായാണ് നിയമം കൊണ്ടുവരുന്നതെന്ന് ബിൽ അവതരിപ്പിച്ച നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

കഴിഞ്ഞ ഡിസംബറിൽ മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കിയിരുന്നെങ്കിലും ബില്ല് പാസാക്കാനാവാതിരിക്കുകയായിരുന്നു

സഭ ഏകകണ്ഠമായാണ് ബിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ

കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രളയബാധിതർക്കായി നിർമ്മിച്ചു നൽകിയ ഒമ്പതു വീടുകളുടെ താക്കോൽദാനം നിർവ്വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തീരദേശത്ത് വസിക്കുന്നതിൽ ഏറെയും മത്സ്യതൊഴിലാളി കുടുംബങ്ങളാണ്

അവരെ കടലാക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറ്റി തീരത്തോടടുത്ത് തന്നെ പാർപ്പിട സൌകര്യമൊരുക്കാനാണ് ഗവൺമെന്റ് മുൻകൈയ്യെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ശ്രീലത

സഞ്ചിതനഷ്ടം സമ്പൂർണ്ണമായും നികത്താനായതിലൂടെ ഇന്തൃയിലെ തന്നെ ഏറ്റവും ഉയർന്ന ലാഭക്ഷമതയും മൂലധന പര്യാപ്തതയുമുള്ള സംസ്ഥാന സഹകരണ ബാങ്കായി കേരള സംസ്ഥാന സഹകരണബാങ്ക് മാറി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ൂരേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി

ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ചാണ് റിപ്പോർട്ട് ആർഖശ്യപ്പെട്ടത്

യോഗ സമാധാനത്തിനും ഐകൃത്തിനും പുരോഗതിക്കുമെന്നാകട്ടെ നമ്മുടെ മുദ്രാവാക്യം എന്ന് റാഞ്ചിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാദിന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ്സമാധാനവും ്ആരോഗൃവും നിറഞ്ഞ ജനതയെ വാർത്തെടുക്കാൻ യോഗ വഴിയൊരുക്കുമെന്ന് ഗവർണർ പി സദാശിവം രാജ്ഭവനിൽ നടന്ന യോഗാ ദിനാചരണത്തോട് അനുബന്ധിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് ജില്ലാ ആയുർവ്വേദ ആശുപത്രിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ പ്രവർത്തകർക്കായി യോഗ പരിശീലനം നടന്നു

ഗൌരിയമ്മ പ്രൌഡ ഗംഭീരമായ ചടങ്ങുകളോടെ ആലപ്പുഴയിൽ മുൻ മന്ത്രി കെ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടയുളള പ്രമുഖരുടെ സാന്നിദ്ധ്യത്തിലാണ് ഗൌരിയമ്മയുടെ പിറന്നാൾ ആഘോഷം സ്ത്രീക്ക് സ്വന്തം മുഖവും വ്യക്തിത്വവുമുണ്ട് എന്ന് കേരള സമൂഹത്തിൽ പൊരുതി സ്ഥാപിച്ച വൃക്തിയാണു ഗൌരിയമ്മയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മന്ത്രിമാരായ ജി സുധാകരൻ പി തിലോത്തമൻ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ തുടങ്ങി ഒട്ടനവധി പ്രമുഖർ പിറന്നാൾ ആഘോത്തിൽ പങ്കെടുത്തു അവസാനശ്ചാസം വരെ സ്ത്രീ സുരക്ഷയ്ക്കായി ശബ്ദമുയർത്തുമെന്ന് സമ്മേളനത്തിൽ ഗൌരിയമ്മ പറഞ്ഞു

ടി എം കാർഡ് ഉപയോഗിച്ച് പണമടയ്ക്കുന്നു സംവിധാനമായ ഇപോസ് മെഷീനുകൾ ഏർപ്പെടുത്തുന്ന ജോലി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നു സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫിസുകളിലും ജൂലായ് ദ്യനകം ഇപോസ് മെഷീനുകൾ വഴി പണം സ്വീകരിക്കുന്ന സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു

തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷൻ എന്നിവ ജനപ്രതിനിധികളുടെ സഹായത്തോടെ ശിശു സൌഹൃദ പോലീസ് സ്റ്റേഷനുകൾ ആക്കിയതിന് പിന്നാലെയാണ് ഇടുക്കി ജില്ലയിലും ശിശുസൌഹൃദ പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങുന്നത്

അൻവർ എം എൽ എയുടെ ഭാര്യാ പിതാവിന്റെ ഉടമസ്ഥയിലുള്ള തടയണ പൊളിച്ചു തുടങ്ങി ഏറനാട് തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് തടയണ പൊളിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി തടയണ പൂർണമായും പൊളിച്ചു മാറ്റാൻ ഒരാഴ്ച സമയമെടുക്കും

്ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിങ് തിരഞ്ഞെടുക്കുകയായിരുന്നു

പ്രീമിയർ ലീഗും ബ്രിട്ടീഷ് കൌൺസിലും ചേർന്ന് വിജയകരമായി സംഘടിപ്പിച്ച പ്രീമിയർ സ്കിൽസിന്റെ തുടർച്ചയായി മൂന്നുജില്ലകളിലെ അധ്യാപകർക്കാണ് പരിശീലനം നൽകുന്നത്

പത്രമാധ്യമങ്ങളില്പെ റിപ്പോർട്ടിംഗ് വികസനോൻമുഖ റിപ്പോർട്ടിംഗ്ഗ് ഫോട്ടോഗ്രഫി കാർട്ടൂൺ വിഭാഗങ്ങളിലും ടിവി റിപ്പോർട്ടിംഗ് ന്യൂസ് റീഡർ ന്യൂസ് കൃാമറ ടിവി ന്യൂസ് എഡിറ്റിംഗ് ട്വ്വി അഭിമുഖം എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ്

ഞാറ്റുവേല കൃഷി പരമ്പരാഗത കൃഷി സമ്പ്രദായമായിരുന്ന ഞാറ്റുവേലകൾ ആസ്പദമാക്കിയുളള കൃഷി തിരിച്ചുകൊണ്ടുവരുന്നതിന് പദ്ധതിയിട്ട് കൃഷി വകുപ്പ് ഇതിന്റെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്ന് നാളെ സംസ്ഥാനത്തുടനീളം ഞാറ്റുവേല ചന്തകൾ ആരംഭിക്കും